ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊൌർജ്ജിതം

പരീക്ഷണ പറക്കൽ വിജയകരം

സാരിഫ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും

കാൻ രാജ്യാന്ത്ര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് ഫ്രാൻസിൽ തുടക്കം

വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ റാലികളെ അഭിസംബോധന ചെയ്യുന്നു

ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു ഹിമാചൽപ്രദേശിലെ സോളനിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകാല കോൺഗ്രസ്സ് ഗവൺമെന്റുകൾക്കെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചു പ്രതിരോധ കരാറുകളെ കോൺഗ്രസ്സ് എ

എം പോലെയാണ് ഉപയോഗിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി

രാഹുൽഗാന്ധി മാപ്പ് ആവശ്യപ്പെടുന്നത് വെറും നാടകം മാത്രമാണെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

കഴിഞ്ഞ അഞ്ച് വർഷത്തെ എൻ

എ ഭരണത്തിലൂടെ അവർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ല എന്നും ശ്രീ

കോൺഗ്രസ്സ് പാർട്ടിയുടെ പ്രഖ്യാപിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ നൃായ് പദ്ധതി രാജ്യത്തിന്റെ സമ്പദ്വൃവസ്ഥയ്ക്ക് ഊർജ്ജം പകരുമെന്നും ശ്രീ രാഹുൽഗാന്ധി പറഞ്ഞു

ഒഡീഷയിലെ ചാന്ദിപൂരിൽ നിന്ന ഡി

അഭ്യാസിന്റെ ഗതി ഹഡാറുകളും ഇലക്ട്രോ ഒപ്റ്റിക് സംവിധാനവും നിർണ്ണയിച്ചതായും പ്രവർത്തനം കാര്യക്ഷമമാണ് എന്ന് തെളിയിച്ചതായും അധികൃതർ അറിയിച്ചു ചെറിയ ഗ്യാസ് എൻജിനിൽ ഘടിപ്പിച്ച് പ്രവർത്തിക്കുന്ന അഭ്യാസിന്റെ ഗതിനിർണ്ണയത്തിനും മാർഗ്ഗനിർദ്ദേശത്തിനുമായി തദ്ദേശീയമായി വികസിപ്പിച്ച എം

അഭ്യാസിന്റെ കാര്യക്ഷമത തെളിയിക്കുന്നതിലൂടെ ചെലവ് കുറഞ്ഞ അതിവേഗ വിമാന പറക്കൽ എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും

ഉഭയകക്ഷിവ്യാപാരം രാജ്യങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്വമാണെന്നും രാജ്യങ്ങൾ കരാറുകളിൽ ഉറച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ജസ്റ്റിസുമാരായ ഇന്ദിരാ ബാനർജി സൻജീവ് ഖന്ന എന്നിവരടങ്ങിയ അവധിക്കാല ബഞ്ചാണ് ഹർജി പരിഗണിച്ചത്

ചന്ദ്രശേഖർ റാവുവും ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ തമ്മിൽ ഇന്ന് ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച ഒരു മണിക്കൂറോളം നീണ്ടു മുതിർന്ന ഡിഎംകെ നേതാക്കളായ ദുരെമുരുഗനും ടി ആർ ബാലുവും സന്നിഹിതരായിരുന്നു

സി ഐ സി ഐ ബ്രാങ്ക് മുൻ സി ഇ

ചോദ്യം ചെയ്യലിനായി ചന്ദാ കൊച്ചാറും ഭർത്താവ് ദീപക് കൊച്ചാറും ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പാകെ ഹാജരാകുകയായിരുന്നു

വീഡിയോകോൺ ഗ്രൂപ്പിനും മറ്റ് കമ്പനികൾക്കും ചന്ദാ കൊച്ചാറിന്റെ കാലയളവിൽ ബാങ്ക് നൽകിയ വായ്പകളെ സംബന്ധിച്ചായിരുന്നു ചോദൃം ചെയ്യലെന്ന് ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു

സി ഐ സി

ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ അമേരിക്ക അനുവദിച്ച ഇളവ് നിർത്തലാക്കിയതിനെ തുടർന്നുള്ള പ്രതിസന്ധികളും അവ തരണം ചെയ്യാനുള്ള ഉപാധികളും പ്രധാന ചർച്ചാ വിഷയമാകുമെന്നാണ് പ്രതീക്ഷ രണ്ട് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായാണ് മൊഹമ്മദ് ജവാദ് സാരിഫ് ഇന്നലെ ന്യൂഡൽഹിയിൽ എത്തിയത് ഇന്ത്യയുഐമറ്റ് ഏഴ് രാജ്യങ്ങളും ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്തിന് അ്മേരിക്ക ഏർപ്പെടുത്തിയ ആറ് മാസത്തെ ഉപരോധം അപ്പസാനിച്ച് ആഴ്ചകൾക്ക് പിന്നാലെയുള്ള ഇറാനിയൻ വിദേശകാര്യമന്ത്രി യുടെ ഇന്ത്യാ സന്ദർശനം പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നു

മുസ്ലിം പളളിയിൽ പ്രാർത്ഥനയ്ക്കിടെയായിരുന്നു സ്ഫോടനം നടന്നത്

രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗമായ മുസ്തിം സമുദായത്തിനെതിരെ ഉയരുന്ന അക്രമ സംഭവങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റിന്റെ നീക്കം കൊളബോയിലെ വടക്കൻ ഭാഗങ്ങളിൽ മുസ്തിം വിരുദ്ധ കലാപങ്ങൾ പൊട്ടി പുറപ്പെട്ട സാഹചരൃത്തിലാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത്

ഇരു രാജ്യങ്ങൾക്കുമിടെ വ്യാപാര്രംഗത്ത് ഉടലെടുത്ത തർക്കങ്ങൾക്കിടെയാണ് പുതിയ നീക്കം ഷി ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച ഫലപ്രദമായിരിക്കുമെന്ന് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു

പുറമേ നിന്നുള്ള ഒരു സമ്മർദ്ദത്തിനും ചൈന കീഴടങ്ങില്ലെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ജെങ് ഷുവാങ് അറിയിച്ചു

ഇന്ത്യയുടെ സംസ്കാരത്തേയും പ്രാദേശിക വൈവിധ്യത്തേയും ലോകർാജ്യങ്ങൾക്ക് മുന്നിൽ എടുത്തുകാട്ടുന്ന തരത്തിലാണ് പ്രപ്ലിയൻ ഒരുക്കുന്നത് ഇതുവഴി രാജ്യത്തെ ചലച്ചിത്ര മേഖലിയിൽ സിനിമകളുടെ വിതരണം സാങ്കേതികവിദൃ തുടങ്ങി വിവിധ മേഖല കളിലെ വിദേശ പങ്കാളിത്തമാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ ചലച്ചിത്ര പ്രവർത്തകർക്ക് വിദേശ ചലച്ചിത്ര പ്രതിനിധികളുമായി സംവദിക്കാനും പവലിയനിൽ അവസരമുണ്ടാകും ഈ വർഷം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പ്രത്യേക പോസ്റ്റർ ഇന്ത്യൻ പ്രതിനിധികൾ പുറത്തിറക്കും പ്രസൂൺജോഷി ഷാജി എൻ കരുൺ മധുർ ഭണ്ഡാർക്കർ തുടങ്ങിയ ചലച്ചിത്ര കാരന്മാർ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സംഘം ഇന്ത്യയിൽ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനായി നടപ്പിലാക്കിയ ഏകജാലക സംവിധാനം ഉൾപ്പെടെയുളളസൌകരൃങ്ങളും നടപടികളും ഇന്ത്യൻ സംഘം വിദേശ ചലച്ചിത്ര പ്രവർത്തകരോട് വിശദീകരിക്കും

രാജൃത്ത് ഇത്തരത്തിൽ അംഗീകാരം നേടുന്ന ആദ്യത്തേതും ഒരേയൊരു സ്ഥാപനവുമാണ് വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന പൂണെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്

ഇന്നത്തെ അര പകൽ കൂടി പൂർത്തിയാകുമ്പോൾ വിശ്വപ്രസിദ്ധമായ പൂരത്തിന് പരിസ്മാപ്തിയാകും ഇന്നലെ വർണ്ണനകളുടെ ആസ്വാദന തലങ്ങളുയർത്തി കുടമാറ്റം മണ്ണും വിണ്ണും മനസും നിറച്ച കാഴ്ചകളാണ് സമ്മാനിച്ചത്